സി പി ഐ എമ്മിന്റെ പ്രവർത്തനത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി പ്രവർത്തകർ ജനങ്ങളോട് വിനയാനിതരാകണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ

സംസ്ഥാനത്തെ ചില ജില്ലക്ളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജീല്ലകളിൽ ശനിയാഴ്ച യെല്ലോ അലർട്ട് മത്സ്യത്തൊഴിലാളിക്ട്രിക്കും മുന്നറിയിപ്പ്

ഇന്തൃയുടെ സാമ്പത്തിക വളർച്ച മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് മികച്ചതെന്ന് കേന്ദ്ര ധനമന്ത്രി സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തുടരുമെന്നും നിർമലാ സീതാരാമൻ

ഐ എൻ എക്സ് മീഡിയ കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം തിങ്കളാഴ്ചവരെ സി ബി ഐ കസ്റ്റഡിയിൽ തുടരും അറസ്റ്റിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച സൂപ്രീംകോടതി പരിഗണിക്കും

സെക്രട്ടറി പാർട്ടിയുടെ ബഹുജന അടിത്തറയ്ക്ക് കുറവ് വന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

സംസ്ഥാന ഗവൺമെന്റ് മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഗവൺമെന്റിന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കും

അക്രമസംഭവങ്ങളിൽ പാർട്ടി പ്രവർത്തകർ പങ്കാളികളാകരുത് ബഹുജന പിന്തുണ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിലും പങ്കെടുക്കരുതെന്നും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു പാർട്ടി വിശ്വാസികൾക്ക് എതിരല്ല ശബരിമല വിഷയത്തിൽ തെറ്റിദ്ധാരണാ ജനകമായ ചില വാർത്തകൾ ചില കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിച്ചതായും ശ്രീ കോടിയേരി പറഞ്ഞു ട്രിച്ചി ഇൻട്രോ ശ്രീലങ്കയിൽ നിന്നും ആറ് പേർ ഉൾപ്പെട്ട ഭീകര സംഘം തമിഴ്നാട്ടിലെത്തിയതായി രഹസ്വാന്വേഷണ വകുപ്പ് മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ട്രിച്ചി വാർത്താ വിഭാഗം മേധാവി ഡോ

ബസ്സ് സ്റ്റാന്റുകൾ റെയിൽവെ സ്റ്റേഷനുകൾ വിമാ നത്താവളങ്ങൾ എന്നിവിടങ്ങളിലും ജനങ്ങൾ കൂടുന്ന മറ്റ് സ്ഥലങ്ങളിലും ജാഗ്രത പുലർത്താൻ നിർദ്ദേശമുണ്ട്

തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും പരിശോധന കർശനമാക്കും

അമേരിക്കയെയും ചൈനയെയുംകാൾ മെച്ചപ്പെട്ട വളർച്ചാനിരക്കാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ന്യൂഡൽഹിയിൽ നടന്ന പത്ര സമ്മേളനത്തിൽ ധനമന്ത്രി പറഞ്ഞു ആഗോള ജി

സാമ്പത്തിക പരിഷ്കാരങ്ങൾ ത്വരിതഗതിയിൽ നടപ്പാക്കുമെന്നും എല്ലാ മേഖലകളിലും വളർച്ച വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു

ആദായനികുതി നോട്ടീസുകൾ ഏകീകൃത രൂപത്തിൽ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു

എക്സ് മീഡിയ കേസിൽ മുൻ കേന്ദ്ര ധനമന്ത്രി പി ചിദംബരം തിങ്കളാഴ്ച വരെ സി ബി ഐ

ബി ഐ യുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെയും വാദങ്ങൾ സുപ്രീംകോടതി തിങ്കളാഴ്ച കേൾക്കും അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചിദംബരത്തിന്റെ ഹർജിയും തിങ്കളാഴ്ച കോടതി പരിഗണിക്കും കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചിദംബരത്തെ സി ബി ഐ

ജാഗ്രത നിർദ്ദേശം കേരള തീരത്ത് മൽസ്യബന്ധനത്തിന് പോകുന്നവർക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ജാഗ്രതാ മുന്നറിയിപ്പ് തീരത്ത് ഉയർന്ന തിരമാല സാധ്യതാ കണക്കിലെടുത്ത് മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ കവളപ്പാറയിലും പതാറിലുമുണ്ടായ ദുരന്തങ്ങൾ കേട്ടറിഞ്ഞതിനേക്കാൾ ഭയാനകമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അദ്ധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്ക് ദുരന്ത ബാധിത സ്ഥലങ്ങളും ഇരയായവരേയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റും ജനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ദുരിതാശ്ചാസ ക്യാമ്പിന്റെ മികച്ച പ്രവർത്തനം

മന്ത്രിമാരായ ഇ പി ജയരാജൻ കെ കെ ശൈലജ രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കും ഇടുക്കി ഇടുക്കിയിലെ ഉരുൾപ്പൊട്ടൽ ഉണ്ടായ സ്ഥലങ്ങളിലും അപകടമേഖലകളിലും ഭൌമശാസ്ത്ര വിദഗ്ദ്ധർ ഇന്ന് പരിശോധന നടത്തി ജില്ലയിലെ അപകടമേഖലകളെക്കുറിച്ച് ദുരന്തനിവാരണ അതോറിറ്റിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും രാഹുൽ വയനാട് മൂന്ന് ദിവസത്തെ വയനാട് സന്ദർശനത്തിനായി രാഹൂൽഗാന്ധി തിങ്കളാഴ്ച വയനാടെത്തും സന്ദർശന വേളയിൽ ജനങ്ങളുമായും പാർട്ടി പ്രവർത്തകരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

സംസ്ഥാനത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് പിറന്നാൾ ആഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ ദർശിക്കാൻ ഗുരുവായൂരിലേക്ക് പുലർച്ച മുതൽ തന്നെ വൻ ഭക്തജന പ്രവാഹമായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെയും ദേവസ്വങ്ങളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച് ഘോഷയാത്രകൾ പുരോഗമിക്കുകയാണ് കണ്ണൂർ ഇൻട്രോ കണ്ണൂർ സർവകലാശാലയും വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ പഠന കേന്ദ്രവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രവർത്തനം തുടങ്ങി തടവുകാർക്ക് പഠനത്തിനായുള്ളതാണ് കേന്ദ്രം കണ്ണൂരിൽ നിന്ന് ആകാശവാണി പ്രതിനിധി കെ

ശശിധരൻ നൽകുന്ന റിപ്പോർട്ട്

ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിൽ ഐസിഎആർ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറലായും സേവനമനുഷ്ടിച്ചിട്ടുണ്ട്

ഇതിനു പുറമെ വടക്കേക്കരയിൽ പ്രളയ ബാധിതർക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും മുഖ്യമന്ത്രി നിർവ്വഹിക്കും എക്സൈസ് പരിശോധന കൊച്ചിയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് അനധികൃത മദ്യ ഉത്പാദനം മയക്കുമരുന്ന് വിതരണം കടത്ത് എന്നിവ തടയുന്നതിന് എക്സൈസ് വകുപ്പ് പരിശോധന ശക്തമാക്കി